പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

നിസ്സഹകരണ പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യാ സമരം മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്ര തുടങ്ങി സ്വാതന്ത്ര്യസമരത്തിലെ സുപ്രധാന ഏടുകളാകും പ്രദർശനത്തിൽ ഉണ്ടാകുക നേതാജി സുഭാഷ് ചന്ദ്രബോസും സർദാർ പട്ടേലും അടക്കമുള്ള നേതാക്കളുടെ ത്യാഗനിർഭരമായ പങ്ക് വൃക്തമാക്കുന്ന ചരിത്ര സംഭവങ്ങളും പ്രദർശിപ്പിക്കും

ആകാശവാണിയും ദൂരദർശനും ശൂജറാത്തിലെ ഉദ്ഘാടന പരിപാടികൾ തത്സമയം ജനങ്ങളിലെത്തിക്കും

കലാ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ വൈകുന്നേരങ്ങളിൽ നഗരത്തിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കും

സ്മരിപ്പിൻ ഭാരതീയരെ എന്ന ഡോക്യൂമെന്ററി പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്

തമിഴ്നാട്ടിലും കേന്ദ്ര ഭരണപ്രദേശമായ പുതുച്ചേരിയിലും ഇന്നുമുതലാണ് പത്രികാ സമർപ്പണം ആരംഭിക്കുക

കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റ ഘട്ടമായി ഏപ്രിൽ ആറിനാണ് വോട്ടെടുപ്പ് നടക്കുക

എഫിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായെങ്കിലും യൂ്ഡി എഫ് എൻ ഡി എ മുന്നണികൾ അവസാന വട്ട സ്ഥാനാർത്ഥി നിർണയ തിരക്കിലാണ്

ഡി

എ യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കുമെന്നാണ് സൂചന

രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസവും ഇന്നാണ്

ഏപ്രിൽ ഒന്നിനാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ്

എന്നാൽ തെരഞ്ഞെടുപ്പിനെ തൂടർന്ന് പരീക്ഷ നീട്ടിവയ്ക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അ്പ്പേക്ഷ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിനെ തുടർന്ന്റ്ണ്ട് തീരുമാനം പ്രാക്ടിക്കൽ പരീക്ഷ മേയിൽ നടക്കും

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ദുരുപയോഗം ചെയ്യും എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും നടക്കുന്ന വ്യാജപ്രചരണം ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ മുന്നറിയിപ്പ്

വാർത്ത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി

ഇതു സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച പരാതി അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും ക്രമസമാധാന സംവിധാനം തെരഞ്ഞെടുപ്പു കമ്മീഷന്റെ നിയന്ത്രണത്തിലാണെന്ന ആക്ഷേപം കമ്മീഷൻ നിരസിച്ചു ഡിജിപിയെ മാറ്റിയത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്

ഫെബ്രുവരി രണ്ട് മുതൽ മുൻനിര കോവിഡ് പ്രിത്രിർരോധ പ്രവർത്തകർക്കും വാക്സിൻ നൽകിത്തുടങ്ങിയിരുന്നു

അമേരിക്കൻ പ്രസിഡന്റ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖരും ഉച്ചകോടിയിൽ സംബന്ധിക്കും പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും സാങ്കേതിക വിദ്യ തീര സംരക്ഷണം കാലാവസ്ഥാ വൃതിയാനം എന്നിവയും ചർച്ചാവിഷയമാകും ഇന്തോ പസഫിക് മേഖലയിൽ കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിനുള്ള പരിശ്രമങ്ങളെ സംബന്ധിച്ചും നേതാക്കൾ ചർച്ച നടത്തും

വൈസ് പ്രസിഡന്റ് കമലാഹാരിസും ചേർന്നാണ് രാജ്യ പുനർനിർമാണത്തിലെ നാഴികക്കല്ലാകുന്ന പുതിയ നിയമത്തിൽ ഒപ്പുവെച്ചത് അമേരിക്കയിൽ നിലവിൽ വന്ന പുതിയ ജനാധിപത്യ ഭരണകൂടത്തിന്റെ സുപ്രധാന നിയമ നിർമാണമാണിത്

എസ് പ്രത്യീയിധി സഭ പ്രസിഡന്റ് ജോ ബൈഡന്റെ അംഗീകാരത്തിനായി സ്മർപ്പിച്ചത്

പരമ്പരയിലെ അഞ്ച് മത്പൂർങ്ങളും അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയത്തിലാണ് നടക്കൂന്നത്

ഇടിമിന്നൽ ദൃശ്യമല്ലെങ്കിലും മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്